ജീവൻ തൃജിച്ച പോലീസുകാരുടെ കുടുംബത്തോടൊപ്പം നാം എല്ലാവരും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ദിവസമാണിന്ന് സ്വന്തം കുടുംബവും സൌഖ്യവുമൊക്കെ മറന്ന് നാടിനുവേണ്ടി ഒരു പുരുഷായുസ്സ് നീക്കിവയ്ക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് കേരളാ പോലീസ് തയ്യാറാക്കിയ വീഡിയോ ഗാനം മുഖ്യമന്ത്രി ഫെയ്സ്ബുക്കിൽ പങ്കുവച്ചു

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ളൂരുമായി ഏറ്റുമുട്ടും